വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ട് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രാജിവച്ചു

ശബ്ദ വോട്ടോടെ പാസാക്കി

അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആറിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തി

മൂന്ന് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദികളെ പൊലീസ് അറസ്റ്റ് ചെയ്തു

വിശ്വാസവോട്ടിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഗവൺമെന്റ് വീണത് മുഖ്യമന്ത്രി എച്ച്

ജനാധിപത്യം വിജയിച്ചതായി ബിജെപി നേതാവ് യെദ്യൂരപ്പ അവകാശപ്പെട്ടു കർണാടത്തിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമം നടത്തുമെന്ന് ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു ഇതിനായി പാർട്ടി നേതാവ് യെദ്യൂരപ്പ നാളെ ഗവർണറെ കാണും

ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധന തേർഡ് പാർട്ടി ഇൻഷുറൻസ് സംബന്ധിയായ പ്രശ്നങ്ങൾ വാടക വാഹന നിയന്ത്രണം റോഡ് സുരക്ഷ തുടങ്ങിയവയാണ് ഭേദഗതിയിലുള്ളത് തിരക്കേറിയ സമയങ്ങളിൽ റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സൌജന്യ ചികിത്സ ഉറപ്പു വരുത്തുന്ന പദ്ധതിയും ബിൽ വിഭാവനം ചെയ്യുന്നു

റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനും ട്രാഫിക് നിയന്ത്രണങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനും ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ബില്ല് സംബന്ധിച്ച ചർച്ചയിൽ മറുപടയായി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ഷീജഗണേഷ്

വ്യാപാരികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാവിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്രംധീരവും ചരിത്രപരവുമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാ കടയുടമകൾക്കും വ്യാപാരികൾക്കുംസ്വയം തൊഴിലാളികൾക്കും സാർവ്വത്രിക സാമൂഷ്കൃ സുരക്ഷ നൽകുന്നതിനായി പെൻഷൻ പദ്ധതി മൂന്ത്യ് സഭ അംഗീകരിച്ചിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വൃതയാന മേഖലകളിൽ ഇന്തൃ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ജാവ്ദേക്കർ ആൽബെയോട് വിശദീകരിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന റിപ്പപ്ലിക് ഡേ ക്യാമ്പിലാണ് അവാർഡുകൾ അനുവദിച്ചത്

ഇതിനിടെ കൊച്ചി ധനുഷ്ക്കോടി ദേശിയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ച് നീക്കാൻനടപടി തുടങ്ങി മരങ്ങൾ മുറിച്ച് നീക്കാൻ വനംവകുപ്പിന് ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി

പുൽവാമ ശ്രീനഗർ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടന്നത് പുൽവാമയിൽ അതിർത്തി വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് തൻവീർ അഹമ്മദ് ഖാനിയുടെ അഘോസയിലെ താമസസ്ഥലം എൻഐഎ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി

കേസുമായി ബന്ധപ്പെട്ടവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുവരുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ഷീജഗണേഷ്

റിസർവ്വ് ബാങ്കിന് രാജ്യത്തോടുളള പ്രതിബദ്ധതയിൽ അധീഷ്ഠിതമായ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ പൊതു സമൂഹത്തിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിന് ആവശ്യമായ പരിവർത്തനങ്ങളും പുതിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും

ഭാവിയിലെ വെല്ലുവിളികളെ അതിജീവിക്കുക അവസരങ്ങളെ ഉപയുക്തമാക്കുക എന്നിവയാണ് പദ്ധതി വിഭാനം ചെയ്യുന്നതെന്ന് റിസർവ് ബാങ്കിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു

നിരവധി നികുതിദായകർ വരുമാന നികുതി റിട്ടേൺ സമർപ്പണത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് തീയതി നീട്ടുന്നതെന്ന് ധനകാര്യമന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു

ശ്രീനഗറിലെ ചാൻപോറയിൽ പ്രത്യേക പൊലീസ് ഓഫീസർ റുമാനെ വെടിവച്ച് കൊന്ന കേസിലും ശ്രീനഗറിലേയും ജമ്മുവിലേയും നഗരങ്ങളിൽ ഗ്രനേഡ് ആക്രമണം നടത്തിയതിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പൊലീസ് പറഞ്ഞു

ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാന്റർ ജുനൈദ് സെഹ്രെയാണ് ആക്രമണം നടത്താൻ തീവ്രവാദികളെ ചുമതലപ്പെടുത്തിയതെന്ന് ശ്രീനഗർ എസ്എസ്പി ഹസീബ്മുഗൾ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു

സൊണാലി എന്ന് നാമകരണം ചെയ്ത ഉത്പന്നത്തിൽ നിന്ന് മണ്ണിൽ എളുപ്പം അലിഞ്ഞുചേരുന്ന കൃാരി ബാഗുകളും പാക്കിംഗ് വസ്തുക്കളും നിർമ്മിക്കാനാവും വസ്ത്ര നിർമ്മാണ മേഖലയിലും ഭക്ഷ്യാത്പാദന രംഗത്തും സൊണാലി പുതിയ വിപ്തവം സൃഷ്ടിക്കുമെന്ന് ബംഗ്ലാദേശ് ജൂട്ട് മിൽ കോർപ്പറേഷന്റെ ശാസ്ത്രോപദേഷ്ടാവും ഗവേഷണ തലവനുമായ മുബാരക് അഹമ്മദ് ഖാൻ അവകാശപ്പെട്ടു സൊണാലിയുടെ വാണിജ്യാടിസ്ഥാനത്തിലുളള ഉത്പാദനും ഇിയ വർഷം അവസാനത്തോടെ ആരംഭിക്കും

കുറ്റയിലെ ഈസ്റ്റേൺ ബൈപാസ് ഭാഗത്താണ് ഒരു മെഡിക്കൽ സ്റ്റോറിന് പുറത്ത് നിറുത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്